ഉൾപ്പെടെ അഞ്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി

കോൺഗ്രസും എൻ സി പിയും ധാരണയിലെത്തിയതായി റിപ്പോർട്ട് ആരോഗ്യരംഗം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഡോക്ടർമാരുമായും

ഭാരത് പെട്രോളിയം കോർപറേഷൻ ഷിപ്പിംഗ് കോർപറേഷൻ കണ്ടെ യ്നർ കോർപറേഷൻ ഉൾപ്പെടെ അഞ്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗം അനുമതി നൽകി

തെഹരി ഹൈഡ്രോ ഡെവലപ്മെന്റ് കോർപറേഷൻ നോർത്ത് ഈസ്റ്റേൺ ഇലക്ട്രിക് പവർ കോർപറേഷൻ എന്നിവയാണ് ഓഹരി വിറ്റഴിക്കുന്ന മറ്റു സ്ഥാപനങ്ങൾ

ബി പി സി എല്ലിന് കൊച്ചി ഉൾപ്പെടെ രാജ്യത്ത് നാലിടങ്ങളിൽ റിഫൈനറിയുണ്ട്

എന്നാൽ ഈ കമ്പനികളുടെ നിയന്ത്രണം ഗവൺമെന്റിനായിരിക്കും സാമ്പത്തിക പ്രയാസം നേരിടുന്ന ടെലകോം കമ്പനികൾക്ക് ആശ്വാസം നൽകാൻ സ്പെക്ട്രം തുക അടയ്ക്കുന്നതിന് മന്ത്രിസഭ രണ്ടു വർഷത്തേക്ക് മൊറ ട്ടോറിയം ഏർപ്പെടുത്തി തൊഴിൽ പരിഷ്കരണങ്ങളുടെ ഭാഗമായി വ്യവ സായ ബന്ധ കോഡ് ബില്ലിനും മന്ത്രിസഭ അംഗീകാരം നൽകി

ഒരുലക്ഷത്തി ഇരുപതിനായിരം ടൺ സ്വാള ഇറക്കുമതി ചെയ്യാനും മന്ത്രിസഭ അനുമതി നൽകി

ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ ഗവൺമെന്റ് പാർലമെന്റിൽ വെളിപ്പെടുത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പദ്ധതി കള്ളപ്പണം വെളുപ്പിക്കാൻ കാരണമായിട്ടുണ്ടെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് നൽകുന്നതിലെ സുതാര്യത നശിപ്പിച്ചിട്ടുണ്ടെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാംനബി ആസാദ് ന്യൂഡൽഹിയിൽ പറഞ്ഞു ഇന്ത്യൻ ജനാധിപതൃത്തിന്റെ പ്രതിച്ഛായ തകർത്ത അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ് മഹാരാഷ്ട്രയിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ ശിവസേനയും കോൺഗ്രസും എൻ സി പിയും ധാരണയിലെത്തിയതായി റിപ്പോർട്ട് സംസ്ഥാനത്ത് ഉടൻതന്നെ സ്ഥിരതയുള്ള ഗവൺമെന്റ് രൂപീകരിക്കുമെന്ന് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പൃഥ്വിരാജ് ചൌഹാൻ ന്യൂഡൽഹിയിൽ വിശ്വാസം പ്രകടിപ്പിച്ചു മുതിർന്ന എൻ സി പി കോൺഗ്രസ് നേതാക്കളുടെ ദീർഘനേരത്തെ കൂടിക്കാഴ്ചയ്ക്കുശേഷമാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്

രണ്ടര വർഷം വീതം മുഖ്യമന്ത്രിസ്ഥാനം ശിവസേനയ്ക്കും എൻ സി പിയ്ക്കുമിടയിൽ പങ്കുവയ്ക്കുന്ന രീതിയിലാണ് ധാരണയെന്നാണ് എൻ സി പി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന അഞ്ചു വർഷക്കാലവും ഉപമുഖ്യമന്ത്രി പദം കോൺഗ്ര സിന് നൽകും

ലീഗ് ദേശീയ പ്രസിഡന്റ് കെ

കാദർ മൊഹിദ്ദീൻ എം പി മാരായ പി

കുഞ്ഞാലിക്കുട്ടി ഇ

മുഹമ്മദ് ബഷീർ എന്നിവ രാണ് സംഘത്തിലുണ്ടായിരുന്നത് ് ് ് ് ് ് ് ന്യൂനപക്ഷ ക്ഷേമത്തിനായി പ്രധാനമന്ത്രിയുടെ പുതിയ പതിന ഞ്ചിന പരിപാടി നടപ്പാക്കുന്നതിന് പ്രവർത്തിക്കുന്ന പ്രധാൻമന്ത്രി ജൻ വികാസ് കാര്യക്രം സംസ്ഥാനതല സമിതി പുനഃസംഘടിപ്പിച്ചു

കുഞ്ഞാലിക്കുട്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ എം എൽ എ മാരായ പി

എ റഹീം രാജു എബ്രഹാം എന്നിവരെ കമ്മിറ്റി യിൽ ഉൾപ്പെടുത്തി

ഗവൺമെന്റ് സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാർ യോഗ ത്തിൽ പങ്കെടുത്തു ചികിത്സയ്ക്കൊപ്പം രോഗപ്രതിരോധത്തിനും ഊന്നൽ നൽകുന്ന ആരോഗ്യനയമാണ് കേരളത്തിനാവശ്യമെന്ന് ഡോക്ടർമാർ അഭി പ്രായപ്പെട്ടു വിദ്യാർത്ഥികളിൽ പൊണ്ണത്തടി വർദ്ധിച്ചുവരുന്നതിന് കാരണം ജങ്ക് ഫുഡാണെന്നും സ്കൂൾ കാന്റീനുകളിൽ നിന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്ക ണമെന്നും അവർ പറഞ്ഞു പ്രമേഹവും രക്തസമ്മർദ്ദവും കണ്ടെത്തുന്ന തിന് പ്രാഥമികാരോഗൃ കേന്ദ്രങ്ങളിൽ സംവിധാനം ഒരുക്കണം കിടപ്പിലായ പ്രമേഹ രോഗികൾക്ക് വീടുകളിൽ മരുന്നെത്തിച്ചു നൽകാൻ നടപടി സ്വീക രിക്കാവുന്നതാണെന്നും അഭിപ്രായമുയർന്നു സംസ്ഥാനത്തിന് മെന്റൽ ഹെൽത്ത് പോളിസി വേണമെന്നും ജില്ലാ ആശുപത്രികൾക്കു കീഴിൽ ഡീഅഡിക്ഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും നിർദ്ദേശമുയർന്നു നിംഹാൻസ് മാതൃകയിൽ സംസ്ഥാനത്ത് മാനസികാരോഗ്യ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണം നവജാതശിശുക്കളിലെ ഭാരക്കുറവിന് പ്രധാന കാരണം വീട്ടിലെ പുരുഷന്മാരുടെ പുകവലിയാണെന്ന് പഠനങ്ങളിൽ കണ്ടെ ത്തിയിട്ടുണ്ടെന്നും ഇതു സംബന്ധിച്ച് വ്യാപക ബോധവത്കരണം നടത്ത ണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു ് നവകേരള നിർമ്മാണത്തിന് അഭിപ്രായം തേടി മുഖ്യമന്ത്രി പിണ റായി വിജയൻ സംസ്ഥാന സർവീസിലെ മുതിർന്ന എഞ്ചിനിയർമാരും വിര ന മിച്ച എഞ്ചിനിയർമാരുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാന കുടിവെള്ള വിത രണ പദ്ധതികൾ തമ്മിൽ ബന്ധിപ്പിക്കണമെന്നും ഒരു പദ്ധതിക്ക് വൃത്യസ്ത ഉറവിടങ്ങൾ ഉണ്ടാവണമെന്നും എഞ്ചിനിയർമാർ അഭിപ്രായപ്പെട്ടു ് ഇന്ത്യ ബംഗ്ലാദേശ് ഡേ നൈറ്റ് ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ ആരംഭിക്കും പിങ്ക് നിറത്തിലുള്ള പന്ത് ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര മത്സരമാണിത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മത്സരം തുടങ്ങും മറ്റന്നാൾ രാവിലെ എട്ടരവരെയാണ് മത്സ രം ഇരുരാജ്യങ്ങളും ആദ്യമായാണ് പകൽ രാത്രി ടെസ്റ്റ് കളിക്കുന്നത്

മലയാളിതാരം സ്യഞ്ജു സാംസൺ ടീമിൽ തുടർന്നേക്കുമെന്നാണ് സൂചന

കാഴ്ച പരിമിതരുടെ രണ്ടാമത് നാഗേഷ് ട്രോഫി ടി ടാന്റി ക്രിക്കറ്റ് ടൂർണ്ണമെന്റിന്റെ കൊച്ചിയിലെ മത്സരങ്ങൾ ഇന്നാരംഭിക്കും കേരളവും ജാർഖണ്ഡും തമ്മിലാണ് ആദ്യ് മത്സരം രണ്ടാം മത്സരത്തിൽ ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്രയെ നേരിടും

കർണാടക ഒൻപത് വിക്കറ്റിനാണ് കേരളത്തെ തോൽപിച്ചത് ് മ കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കന്ററി വിഭാഗത്തിൽ ബാലുശ്ശേരി ഉപജില്ലയും ഹൈസ്കൂൾ വിഭാഗ ത്തിൽ കോഴിക്കോട് സിറ്റി ഉപജില്ലയും മുന്നിട്ടു നിൽക്കുന്നു യു പി വിഭാ ഗത്തിൽ കൊയിലാണ്ടി ഉപജില്ലയാണ് മുന്നിൽ ് ് ് ് ് ് ് കേരള ഗവൺമെന്റ് സ്ഥാപനമായ ഒഡെപെക് മുഖേന നഴ്സു മാരടക്കമുള്ളവരുടെ വിദേശ റിക്രൂട്ട്മെന്റ് സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ടി

രാമകൃഷ്ണൻ പറഞ്ഞു ഇതിനായി വിവിധ രാജ്യങ്ങളിലെ എംബസികളുമായി ചർച്ച നടത്തും

ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ക്യാമ്പയിൻ സംഘടി പ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് ഒഡെപെക് സംഘടിപ്പിച്ച യു കെ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതല ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു അദ്ദേഹം

ഇന്നലെ വൈകിട്ട് വയലിൽ ക്രിക്കറ്റ് കളിച്ച് മടങ്ങവെയാണ് ഇടിമിന്നലേറ്റത് ഷമീൻ ചോതാവൂർ ഹയർ സെക്കന്ററി സ്കൂൾ പ്തസ് ടു വിദ്യാർത്ഥിയാണ്

വയനാട് ബത്തേരിയിൽ ക്ലാസ് മുറിയിൽ നിന്ന് പാമ്പുകടിയേറ്റ് വിദ്യാർത്ഥിനി മരിച്ചു ബത്തേരി ഗവൺമെന്റ് സർവജന ഹയർസെക്കന്ററി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി പുത്തൻകുന്ന് ഷഹ്ല ഷെറിനാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് മൂന്നരയോടെ ക്ലാസ് മുറിക്കുള്ളിലെ ചുമരിനോട് ചേർന്ന ചെറിയ പൊത്തിൽ നിന്നാണ് കുട്ടിയെ പാമ്പു കടിച്ചത്

മുംബൈ മലയാളി എം

ബാലനാണ് മരിച്ചത്

മലബാറിന്റെ വിവിധ റെയിൽവെ പ്രികസന വിഷയങ്ങളിൽ അടി യന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് എം

രാഘവൻ എം

റെയിൽവെ സഹമന്ത്രി സുരേഷ് അങ്ങാടിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നട ത്തി വിവിധ വിഷയങ്ങളിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് ബന്ധ പ്പെട്ടവർക്ക് നിർദ്ദേശം നൽകാമെന്ന് മന്ത്രി ഉറപ്പുനൽകിയതായി എം പി അറിയിച്ചു കോഴിക്കോട് റെയിൽവെ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തി ലേക്കുയർത്തുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് റെയിൽ ലാൻഡ് ഡവല പ്മെന്റ് അതോറിറ്റി വൈസ് ചെയർമാൻ വേദ് പ്രകാശ് ദുദേജയുമായും രാഘവൻ കൂടിക്കാഴ്ച നടത്തി

ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ തൃശൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യ ത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികളെകുറിച്ച് ബോധവൽക്ക രണ പരിപാടി കൊടുങ്ങല്ലൂരിൽ ഇന്നാരംഭിക്കും ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തെകുറിച്ച് ഡി എ വി പിയുടെ പ്രദർശനവും വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ പരിചയപ്പെടുത്തുന്ന സ്റ്റാളു കളും ഒരുക്കിയിട്ടുണ്ട്

ഹെൽമെറ്റ് ധരിക്കാത്ത ഇരുചക്രവാഹന യാത്രക്കാരെ പിന്തുടർന്ന് പിടികൂടരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇത് അപകടങ്ങൾക്കിടയാ ക്കുമെന്നതിനാലാണ് നിർദ്ദേശം ട്രാഫിക് കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ ആധുനിക ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്നും ഹൈക്കോ ടതി ആവശ്യപ്പെട്ടു

അമ്മമാരിലും കുട്ടികളിലുമുണ്ടാ കുന്ന പോഷണക്കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പോഷൺ അഭിയാന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് സർവ്വെ കണ്ണൂർ കാസർകോട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഇപ്പോൾ സർവ്വെ നടത്തുന്നത് ബാക്കി ജില്ലകളിൽ സർവ്വെ ഉടൻ ആരംഭിക്കും

ശാസ്ത്രജാലകം ത്രിദിന കൃാമ്പിന് കൊല്ലം ജില്ലയിൽ തുടക്കമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർഥികളിൽ ശാസ്ത്രാഭിരുചി വളർത്തുക എന്ന് ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

സംസ്ഥാന വനിതാ ശിശു വിക്സന വകുപ്പ് ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവയുടെ നേതൃത്തിൽ തൊടുപുഴയിൽ അന്താരാഷ്ട്ര ബാലാവകാശ ദിനാചരണം സംഘടിപ്പിച്ചു മുൻസിപ്പൽ ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു

കോഴിക്കോട് കക്കയം ഡാമിന്റെയും അനുബന്ധ ഡാമുകളു ടെയും അപകട സാഹചര്യങ്ങൾ നേരിടാൻ വൈദ്യുതി ബോർഡ് വിശദ മായ കർമ്മ പദ്ധതി തയാറാക്കി

കവളപ്പാറ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട് ഇപ്പോഴും ക്യാമ്പിൽ തുടരുന്നവർക്ക് വാടകവീട് ഉറപ്പാക്കിയിട്ടു ണ്ടെന്ന് മലപ്പുറം ജില്ലാ ഭരണകൂടം അറിയിച്ചു

ടി

പിയുടെ നേതൃത്വത്തിൽ പോത്തുകല്ലിൽ തുടരുന്ന കൃാമ്പിലെ ഇരുപത്തഞ്ചോളം കുടുംബ ങ്ങൾക്കാണ് സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ വാടക വീടുകൾ ഏർപ്പെടുത്തിയത്